എസ് എൽ സി ഹയർസെക്കൻഡറി പരീക്ഷകൾ ഇന്ന് പുനരാരംഭിക്കും

പിമാരുടേയും എം എൽ എമാരുടേയും യോഗം രാവിലെ

ത വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരികെയെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന്റെ രണ്ടാംഘട്ടം ഇന്ന് ആരംഭിക്കും

എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് പുനഃരാംരംഭിക്കും രാവിലെ പ്ലസ്ടു പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം എസ് എസ് എൽ സി പ്ലസ് വൺ പരീക്ഷകളുമാണ് നടക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഇന്നലെ പൂർത്തിയാക്കി ക്ലാസ് മുറികളിലെ അണുനശീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു

എസ് ആർ

സി ബസുകളുടെയടക്കം സഹായം തേടിയിട്ടുണ്ട് സ്കൂൾ ബസുകൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും വിദ്യാർഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാം വിദ്യാർഥികൾക്ക് ആവശ്യമായ മാസ്കുകളും സാനിറ്റൈസറുകളും സ്കൂളുകളിൽ ലഭ്യമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും പരീക്ഷ പരീക്ഷ കേന്ദ്രങ്ങൾക്ക് പുറത്ത് പൊലീസിനെയും വിന്യസിക്കും

കണ്ടെയിൻമെന്റ് സോണുകളിൽ പരീക്ഷ കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിരോധനാജ്ഞയും ഏർപ്പെടുത്തി

എസ് എൽ

എസ് എൽ സി ഹയർസെക്കൻഡറി പരീക്ഷകൾക്ക് വിദ്യാർഥികളെ എത്തിക്കുന്ന വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ജില്ലാ പൊലീസ് മേധാവികൾക്ക് നിർദേശം നൽകി പരമാവധി വനിതാ പൊലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നും ഡി ജി പി ആവശ്യപ്പെട്ടു രുമ സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടേയും എം എൽ എ മാരുടേയും യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടത്തും പത്തരയ്ക്ക് വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും യോഗം നാളെ സർവ്വകക്ഷി നേതാക്കളുടെ യോഗവും ചേരുന്നുണ്ട് രുര സംസ്ഥാനത്തെ കോവിഡ് സമൂഹ വ്യാപനം കണ്ടെത്താൻ ഇന്ന് റാൻഡം പരിശോധന നടത്തും സംസ്ഥാനത്തിന് പുറമെ നിന്ന് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെയാണ് സമൂഹ വ്യാപനസാധ്യത പരിശോധിക്കുന്നത് മൂവായിരം പേരുടെ സാമ്പിളുകൾ ഇന്ന് പരിശോധിക്കും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിക്കുന്നത് കോവിഡ് ലക്ഷണമോ രോഗികളുമായി സമ്പർക്കമോ ഇല്ലാത്തവർ വിദേശ യാത്രയും അന്യ സംസ്ഥാന യാത്രയും നടത്താത്തവർ മുതിർന്ന പൌരൻമാർ ഗർഭിണികൾ തുടങ്ങിയവരിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളിന്റെ പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനകം ലഭ്യമാകും

കോഴിക്കോട്ട് നാലു പേർക്കും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മൂന്നു പേർക്ക് വീതവും കൊല്ലം കോട്ടയം ജില്ലകളിൽ രണ്ടു പേർക്ക് വീതവും ഇടുക്കിയിൽ ഒരാൾക്കുമാണ് രോഗബാധ കണ്ടെത്തിയത്

ഇവരിൽ രണ്ടു പേർ കണ്ണൂർ ജില്ലയിലെ റിമാന്റ് തടവുകരാണ് തിരുവനന്തപുരത്തേത് ആരോഗ്യപ്രവർത്തകനും

നാലു പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടുകളാക്കി കണ്ണൂർ ജില്ലയിലെ പിണറായി പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി മലമ്പുഴ ചാലിശ്ശേരി എന്നിവിടങ്ങളാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ

അഞ്ചു പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ബാക്കി അഞ്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ

കോഴിക്കോട് ജില്ലയിൽ നാലു പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന ഏറാമല സ്വദേശികളായ രണ്ടുപേർക്കും നാദാപുരം കട്ടിപ്പാറ സ്വദേശികൾക്കുമാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്

കൊല്ലം ജില്ലയിൽ മസ്കറ്റിൽ നിന്നും ഡൽഹിയിൽ നിന്നും എത്തിയ ഓരോരുത്തർക്കാണ് കോവിഡ് ബാധിച്ചത്

തുടർച്ചയായ മൂന്നാം ദിവസവും തൃശൂർ ജില്ലയിൽ ആരും കോവിഡ് പോസിറ്റീവായില്ല വയനാട് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മീനങ്ങാടി സ്വദേശിനിയും രോഗം ഭേദമായി വീട്ടിലേക്ക് പോയി ഇനി എട്ടു പേരാണ് ജില്ലയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ ധർമ്മടം സ്വദേശിനി ആസിയയാണ് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ മരിച്ചത്

കബറടക്കം ഇന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടക്കും

കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി കാവുങ്ങൽ ഷമീറാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് രുമ പാലക്കാട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചത് സമൂഹ വ്യാപന ആശങ്ക ഉണ്ടാക്കുന്നതായി മന്ത്രി എ

ചെറിയ സമ്പർക്കത്തിലൂടെ പോലും ചെക്ക് പോസ്റ്റുകളിൽ രോഗം പകർന്നിട്ടുണ്ട് ആദ്യ രണ്ടു ഘട്ടങ്ങളിൽ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ മൂന്നാംഘട്ടത്തിൽ സാധ്യമാവണമെന്നില്ലെന്നും അത് പൊതുജനങ്ങൾ സ്വയം മനസിലാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അഞ്ചു പേർക്കാണ് ഇന്നലെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് രുദ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നേരിട്ട് എത്തിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി നിർദേശിച്ചു വീഡിയോ കോളിലൂടെ പ്രതികളെ ഹാജരാക്കിയാൽ മതിയെന്ന് ഡി ജി പിക്ക് നൽകിയ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരികെയെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും

സംസ്ഥാന ഗവൺമെന്റുകളുമായി കൂടിയാലോചിച്ച് കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് യാത്രക്കാരെയെത്തിക്കും ജൂൺ എട്ടുവരെയാണ് സർവീസുകൾ

ഇവയിൽ ഏറിയ പങ്കും കേരളത്തിലേക്കായിരിക്കും

ജെ പി രാജ്യവ്യാപകമായി ഡിജിറ്റൽ റാലികൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി അരുൺസിങ് അറിയിച്ചു

രണ്ടാം വർഷത്തേക്ക് കടക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ചരിത്രപരമായ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനാണ് പരിപാടികൾ

റെയിൽവേയുടെ നടപടിയോട് എല്ലാ സംസ്ഥാനങ്ങളും സഹകരിക്കണമെന്ന് പിയൂഷ് ഗോയൽ ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു രേര കാലടിയിൽ സിനിമാ ചിത്രീകരണത്തിന് തയാറാക്കിയ സെറ്റ് തകർത്ത സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എ

വലിയ തുക ചെലവഴിച്ച് നിർമ്മിച്ച സെറ്റ് ആവശ്യമായ അനുമതികളോടെയാണ് നിർമ്മിച്ചതെന്ന് മനസിലായിട്ടുണ്ടെന്നും വർഗീയ ശക്തികൾ കാണിക്കുന്ന ധിക്കാരം അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

മൂന്നു പ്രതികളെ കൂടി പൊലീസ് തേടിവരികയാണ് രദേ കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയുടെ കൊലപാതകത്തിൽ പ്രതികളെ കോടതി നാലു ദിവസത്തേക്ക് പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒന്നാം പ്രതി സൂരജിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരണത്തിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു